എം ഹൈക്കോടതി വിധിയെതുടർന്ന് പിരിച്ചുവിട്ട കെ എസ് ആർ

സി എംപാനൽ ജീവനക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടങ്ങി സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ വികസനമാണ് നവകേ രളത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജ യൻ

തിരുവല്ല പെരിങ്ങരയിൽ കീടനാശിനിതളിച്ച രണ്ടുപേർ മരിച്ച സംഭവത്തിൽ സമഗ്രാന്വേഷണം വേണമെന്ന് പ്രതിപക്ഷനേ താവ് രമേശ് ചെന്നിത്തല

ഔദ്യോഗിക ഉദ്ഘാടനം നാളെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നിർവഹിക്കും ഹൈക്കോടതിവിധിയെ തുടർന്ന് കെ എസ് ആർ ടി സിയിൽ നിന്ന് പിരിച്ചുവിട്ട എംപാനൽ ജീവനക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാലസമരം തുടങ്ങി നിയമസഭാസമ്മേളനം തുടങ്ങുന്നതുവരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരും അതി നുശേഷം നിയമസഭയ്ക്ക് മുന്നിലേക്ക് സമരം മാറ്റാനാണ് തീരു മാനമെന്നും കൂട്ടായ്മ അറിയിച്ചു പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കു കയോ മതിയായ നഷ്ടപരിഹാരം നൽകുകയോ വേണമെന്നാവ ശ്യപ്പെട്ടാണ് സമരം അതിനിടെ പിരിച്ചുവിടലിനെതിരെ നൽകിയ ഹർജിയുടെ പരി ഗണന ഹൈക്കോടതി നാളത്തേക്ക് മാറ്റി

എസ് ആർ ടി സി യിൽ പിൻവാതിൽ നിയമനം പാടില്ലെന്ന് ഇതുമായി ബന്ധപ്പെട്ട് പി എസ് സി കോടതിയിൽ നിലപാടറിയിച്ചു നവകേരളത്തിലൂടെ ലക്ഷ്യമിടുന്നത് സാമൂഹിക നീതിയിലധി ഷ്ഠിതവും സർവതല സ്പർശിയുമായ വികസനമാണെന്ന് മുഖ്യ മന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സുസ്ഥിര വികസനവും മെച്ച പ്പട്ട തൊഴിലവസരങ്ങളും ലഭ്യമാക്കാനും സംസ്ഥാനത്തെ നിക്ഷേപസൌഹൃദമാക്കാനും കഴിയണമെന്ന് അദ്ദേഹം നിർദേശി ച്ചു നവകേരളത്തിന്റെ ഗുണഭോക്താക്കൾ യുവജനങ്ങളാകണ മെന്നും അതിനുള്ള ക്രിയാത്മക മാറ്റങ്ങൾ എല്ലാരംഗത്തും കൊണ്ടു വരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മിതിയുമായി ബന്ധപ്പെട്ട കേരള റീ സ്ട്രക്ചർ ആന്റ റീ ഇൻവസ്റ്റ്മെന്റ് എന്ന സെമിനാർ തിരുവനന്തപുരത്ത് ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട റിട്ട് ഹർജി കൾ അടുത്തമാസം എട്ടിന് സുപ്രീംകോടതി പരിഗണിച്ചേക്കും

സ്ത്രീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കപ്പെട്ട പുനപരിശോധനാ ഹർജികളും റിട്ട് ഹർജികളും വെവ്വേറെയാണ് പരിഗണിക്കുകയെന്നും പുനപരിശോധനാ ഹർജികൾക്കുശേഷം മാത്രമേ റിട്ട് ഹർജികൾ പരിഗണിക്കൂ വെന്നും കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു കേസ് പരിഗ ണിക്കുന്ന ബെഞ്ചിൽ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അവധിയിൽ പ്രവേശിച്ചതിനാൽ നാളെ പുനപരിശോധനാഹർജി പരിഗണിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് നേരത്തെ അറിയിച്ചിരുന്നു

ഇതനുസരിച്ച് റിട്ട് ഹർജി പരിഗണിക്കുന്ന തിയ്യതിയിലും വ്യത്യാസം ഉണ്ടായേക്കും ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപു രത്ത് നടന്ന അയ്യപ്പ ഭക്തസംഗമവേദിയിൽ കണ്ടത് സവർണ്ണ ഐക്യമാണെന്ന് എസ്

ഡി

ഒരു പിന്നാക്കക്കാരനെയും കാണാൻ കഴിഞ്ഞില്ലെന്നും വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോ ടെയുള്ള പരിപാടിയായിരുന്നു ഇതെന്നും വെള്ളാപ്പള്ളി കോട്ട യത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ക്ഷണം ലഭിച്ചിരുന്നെ ങ്കിലും സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത് മഹാഭാഗ്യ മായി അതിൽ സംബന്ധിച്ചിരുന്നെങ്കിൽ നിലപാടുകൾക്ക് വിരു ദ്ധമായ പ്രവൃത്തിയായി അത് മാറുമായിരുന്നുവെന്നും വെള്ളാ പ്പള്ളി വിശദീകരിച്ചു ശബരിമല വിഷയത്തിൽ ഗവൺമെന്റ് ഒരു തെറ്റും ചെയ്തി ട്ടില്ല എന്നാലത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടു ശബരിമല കയറിയ സ്ത്രീകളുടെ പട്ടിക കൃത്യ മായി പരിശോധിക്കാതെ കോടതിയിൽ കൊടുത്തത് ഗവൺമെന്റിന്റെ വീഴ്ചയാണെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെ ട്ടു ശബരിമലയിൽ രണ്ട് യുവതികൾ ദർശനം നടത്തിയതിനെ തുടർന്ന് ശുദ്ധിക്രിയ നടത്തിയതിൽ കാരണം കാണിക്കാൻ തന്ത്രിയ്ക്ക് രണ്ടാഴ്ച സാവകാശം നൽകി തന്ത്രിയുടെ ആവശ്യം പരിഗണിച്ച് രണ്ടാഴ്ചത്തേക്കാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സമയം നീട്ടി നൽകിയത് അതേസമയം തന്ത്രിയ്ക്ക് ദേവസ്വം ബോർഡ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ തിനെതിരെ സമർപ്പിച്ച ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും ബെങ്കലൂരു സ്വദേശിയാണ് ഹർജി നൽകിയത് തിരുവല്ല പെരിങ്ങരയിൽ കീടനാശിനി തളിച്ച രണ്ടുപേർ മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷനേ താവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു സംഭവം കൃഷിവകുപ്പിന്റെ അനാസ്ഥമൂലമാണ് കാർഷിക മേഖലയായ അപ്പർ കുട്ടനാട്ടിലെ പല പഞ്ചായത്തുകളിലും കൃഷി ഓഫീസർമാരോ ആവശ്യത്തിന് ജീവനക്കാരോ ഇല്ല അതിനാൽ കീടനാശിനി എത്രയളവിൽ ഉപ യോഗിക്കണമെന്ന നിർദേശം കർഷകർക്ക് ലഭിക്കുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി മരിച്ച സനൽ കുമാറിന്റെയും മത്തായി യുടെയും കുടുംബത്തിന് ഗവൺമെന്റ് സഹായം നൽകണമെ ന്നും പ്രതിപക്ഷനേതാവ് ആവശ്യപ്പെട്ടു മരിച്ചവരുടെ വീടുകൾ സന്ദർശിച്ച അദ്ദേഹം കുടുംബങ്ങൾക്ക് വീടുവെച്ച് നൽകാൻ നാല് ലക്ഷം രൂപ സഹായം നൽകുമെന്നും അറിയിച്ചു

ഐ ബി ഉൾപ്പെടെ ഏജൻസിക ളാണ് ആലുവയിലെത്തി കസ്റ്റഡിയിൽ കഴിയുന്ന രണ്ടുപേരെ ചോദ്യം ചെയ്യുന്നത്

യു ഡി എഫ് മറ്റന്നാൾ സെക്രട്ടേറിയറ്റും കലക്ടറേറ്റുകളും ഉപരോധിക്കും പ്രളയാനന്തര ഭരണസ്തംഭനം ക്രമസമാധാനത്ത കർച്ച വിശ്വാസികളെ വഞ്ചിച്ച നടപടി എന്നിവയിൽ പ്രതിഷേധി ച്ചാണ് ഉപരോധസമരം തിരുവനന്തപുരത്ത് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല സെക്രട്ടേറിയറ്റ് ഉപരോധം ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് കലക്ടറേറ്റ് ഉപരോധം കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും വയനാട് കലക്ടറേറ്റ് ഉപരോധം മുസ്തിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി യും മലപ്പുറത്ത് പി

കുഞ്ഞാലിക്കുട്ടി എം പി യും ഉദ്ഘാടനം ചെയ്യും ചന്ദ്രബോസ് കൊലക്കേസ് പ്രതി മുഹമ്മദ് നിസാമിന് അമ്മയെ കാണാൻ മൂന്നു ദിവസത്തേക്ക് ഹൈക്കോടതി അനുമതി നൽകി ഇതേതുടർന്ന് ഇന്നലെ രാത്രി തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്നും നിസ്സാമിനെ എറണാകുളം സബ് ജയിലിൽ എത്തിച്ചു അമ്മയെ അല്ലാതെ മറ്റാരെയും കാണരുതെന്ന ഉപാധിയോടെയാണ് കോടതി അനുമതി നൽകിയത് തൃശ്ശൂരിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ കൊലപ്പെടുത്തിയ കേസിലാണ് നിസ്സാം തടവിൽ കഴിയുന്നത്

ബി ഐ താൽകാലിക ഡയറക്ടർ എം നാഗേശാർ റാവുവിന്റെ നിയമനം ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പിന്മാറി

ബി ഐ ഡയറക്ടറെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഉന്ന താധികാര സമിതിയിൽ അംഗമായതിനാലാണ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പിന്മാറിയതെന്നാണ് ഔദ്യോഗിക വിശദീകരണം

എ

ആദ്യദിവസമായ ഇന്ന് യുവപ്രവാസി ഭാരതീയ ദിവസ് വിദേ ശകാര്യമന്ത്രി സുഷമസ്വരാജ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്രമന്ത്രി രാജ്യവർദ്ധൻസിംഗ് റാത്തോഡ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രവാസി ഭാരതീയ ദിവസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും

ബുധ നാഴ്ച സമാപന സമ്മേളനത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രവാസി ഭാരതീയ പുരസ്കാരങ്ങൾ സമ്മാനിക്കും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് വൈകിട്ട് തിരുവനന്തപുരത്ത് ചർച്ച നടക്കും കമ്പനി ചെയർമാൻകൂടിയായ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് വിമാ നക്കമ്പനികളുടെ യോഗം ചേരുന്നതെന്ന് എം ഡി വി

കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയ അധി കൃതരും യോഗത്തിൽ പങ്കെടുക്കും സംസ്ഥാന ഭൂവിനിയോഗ ബോർഡിന്റെ നവകേരള നിർമ്മി തിയും ഭൂവിനിയോഗ ആസൂത്രണവും സെമിനാർ നാളെ തിരുവ നന്തപുരത്ത് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ഭൂവിഭവ വിവര സംവിധാനത്തിന്റെ പൂർത്തീകരണം ചടങ്ങിൽ സ്പീക്കർ പ്രഖ്യാപിക്കും

ആദ്യ ഏകദിനം നാപ്പിയറിൽ ബുധ നാഴ്ച നടക്കും ശനിയാഴ്ചയാണ് രണ്ടാം ഏകദിനം

പാലക്കാട് ജില്ലയിൽ സപ്ലൈകോ മുഖേന രണ്ടാം വിള നെല്ല് സംഭരണത്തിന് രജിസ്റ്റർ ചെയ്യാൻ ഒരാഴ്ച കൂടി അനുവദിച്ചു

അടുത്തമാസം ആദ്യവാരത്തോടെ നെല്ലെടുപ്പ് സജീവമാകും

സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇന്ധനവിലയിൽ ഇന്നും വർധന

വരയാടുകളുടെ പ്രജനന കാലം ആരംഭിച്ചതിനെ തുടർന്ന് ഇടുക്കി ഇരവികുളം ദേശീയോദ്യാനം അടച്ചു